സമരം തുടരുമെന്ന് സമര സമിതി നേതാക്കൾ

ഡി എഫും യു ഡി എഫും തീരുമാനിച്ചു

ജാതി സംവരണത്തെ ഒരു തരത്തിലും ബാധി ക്കാതെയാണ് സാമ്പത്തിക സംവരണം നടപ്പാക്കിയത്

ഇതിനായി സീറ്റുക ളുടെ എണ്ണം പത്ത് ശതമാനം വർധിപ്പിക്കുകയും ചെയ്യും

ഓരോ പാർലമെന്റ് മണ്ഡലത്തിലും ഓരോ മെഡി ക്കൽ കോളജ് എന്ന ലക്ഷ്യം നേടിയെടുക്കാൻ കേന്ദ്രം നടപടിയെടുത്ത് വരികയാണെന്നും നരേന്ദ്രമോദി അറിയിച്ചു തൃശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് പരപ്പനങ്ങാടി ഫിഷിങ് ഹാർബർ ആലപ്പുഴ മൊബിലിറ്റി ഹബ്ബ് എന്നിവടക്കം ഒമ്പത് അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് തിരുവനന്തപുരത്ത് ചേർന്ന കിഫ്ബി ബോർഡ് യോഗം അംഗീകാരം നൽകി

തോമസ് ഐസക് അറിയിച്ചു

നൂതന ധന സമാഹരണ മാർഗങ്ങളിലൂടെ കിഫ്ബി ഫണ്ട് കണ്ടെത്താൻ രൂപീക രിക്കുന്ന അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ രൂപീകരണവും യോഗം വില യിരുത്തി

പി ജയരാജൻ സമ രസമിതിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു

ഇതേ തുടർന്നാണ് ചർച്ച പരാജയപ്പെട്ടത്

സീവാഷിങ്ങിനെകുറിച്ച് പഠി ക്കാൻ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിലെ ശാസ്ത്രജ്ഞൻ ടി എൻ പ്രകാശിന്റെ നേതൃത്പത്തിൽ വിദഗ്ദ സമിതിയെ നിയമിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഖനനം നിർത്താൻ ഗവൺമെന്റ് തയാറല്ലാത്തതിനാൽ സമരം തുടരു മെന്ന് പിന്നീട് സമരസമിതി ചെയർമാൻ കെ ചന്ദ്രദാസ് അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി താഴെതട്ട് വരെ പ്രവർത്ത നങ്ങൾ ശക്തിപ്പെടുത്താൻ എൽ ഡി എഫും യു ഡി

ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന നേതൃയോഗങ്ങളിലാണ് തീരുമാനം

കേരളത്തിൽ നിന്ന് കൂടുതൽ ഇടത് എം പിമാരെ വിജയിപ്പി ക്കുകയെന്ന രാഷ്ട്രീയ ദൌത്യം ഏറ്റെടുക്കാൻ മുന്നണിയെ സജ്ജമാക്കു മെന്ന് കണ്ഡവീനർ എ വിജയരാഘവൻ വാർത്താസമ്മേളനത്തിൽ അറി യിച്ചു തിരുവനന്തപുരം മേഖലാജാഥ കോടിയേരി ബാലകൃഷ്ണനും വട ക്കൻ മേഖലാജാഥ കാനം രാജേന്ദ്രനും നയിക്കും രണ്ട് ജാഥകളും തൃശൂ രിൽ മാർച്ച് രണ്ടിന് സമാപിക്കും

ഡി എഫിൽ ചേരാൻ താൽപര്യം പ്രകടിപ്പിച്ച പാർട്ടിക ളുമായി ചർച്ച നടത്താൻ കൺവീനർ ബെന്നിബെഹനാൻ കൺവീനറായി ഉപസമിതി രൂപീകരിച്ചു അടുത്ത യു ഡിഎഫ് യോഗത്തിന് മുമ്പ് ചർച്ച നടത്തി സമിതി റിപ്പോർട്ട് തയാറാക്കും കേരളത്തിലെ രാഷ്ട്രീയ സാഹ ചര്യം യു ഡി എഫിന് അനുകൂലമാണെന്ന് യോഗം വിലയിരുത്തി

സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക മായി തെരഞ്ഞെടുപ്പ് തിയതി സംബന്ധിച്ച വ്യാജ വാർത്തകൾ പ്രചരി ക്കുന്ന സാഹചര്യത്തിൽ ഡൽഹി മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസറോട് പരാതി നകാൻ കമ്മീഷൻ ആവശ്യപ്പെടുകയായിരുന്നു

ശാസ്ത്ര സാങ്കേതിക പദങ്ങൾക്ക് തത്തുല്യ മലയാള പദങ്ങൾ കണ്ടെ ത്താൻ കഴിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദേശിച്ചു

പല ഇംഗ്ലീഷ് വാക്കുകൾക്കും പകരം മലയാള ത്തിൽ കണ്ടെത്തുന്ന വാക്കുകൾ ബുദ്ധിമുട്ടേറിയ സംസ്കൃത പദങ്ങളാ ണ് തമിഴിൽ ബോയിലിങ് പോയിന്റിന് തിളനില എന്ന് പറയുമ്പോൾ മല യാളത്തിൽ അതിന് കഥനാങ്കം എന്ന വാക്കാണ് പകരം വെച്ചിരിക്കുന്ന ത് മനസ്സുവെച്ചാൽ നല്ല വാക്കുകൾ മലയാളത്തിലും കണ്ടെത്താമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ദർശനത്തിന്റെ പേരിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ടെന്നും ഹർജി അടിയന്തിരമായി പരിഗണിക്കണമെന്നും മുതിർന്ന അഭിഭാഷക ഇന്ദിര ജയ്സിങ് വഴിയാണ് ബിന്ദുവും കനകദുർഗയും അഭ്യർഥിച്ചത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്

മറ്റന്നാൾ രാവിലെ പന്തളം രാജപ്രതിനിധി മുലം തിരുനാൾ രാഘവവർമ്മയുടെ അയ്യപ്പ ദർശ നത്തോടെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം പൂർത്തിയാക്കി ശബരി മലയിൽ നട അടക്കും

ജില്ലയിലെ തീർത്ഥാടന ടൂറിസ വികസനത്തിന് ഇത് വൻ മുന്നേറ്റം ഉണ്ടാക്കുമെന്നും മന്ത്രി പത്തനംതിട്ടയിൽ പറഞ്ഞു

മൂന്നു മത്സരങ്ങളുടെ പരമ്പരയിൽ ഇരുടീമുകളും ഓരോ മത്സരം ജയിച്ചിട്ടുണ്ട് ഇന്ന് ജയിക്കാനായാൽ ഇന്ത്യയ്ക്ക് ടെസ്റ്റിനൊപ്പം ഏകദിന പരമ്പരയും സ്വന്തമാക്കാം

എറണാകുളം ജില്ലയിൽ കുത്തുകുഴി സഹകരണ ബാങ്കിന്റെ ശാഖ കോതമംഗലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സഹക രണ സംഘങ്ങൾ കൂടുതൽ ബ്രാഞ്ചുകൾ തുടങ്ങാൻ തയാറാവണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു

കർഷകരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ വിവാഹ സ്ഹായങ്ങൾ അപ കടത്തിൽ പെടുന്നവർക്ക് ചികിത്സാ സഹായ്ം എന്നിവയാണ് ബോർഡു വഴി ലഭ്യമാക്കാനുദ്ദേശിക്കുന്നത്

കൊല്ലം മുഖത്തല ഗ്രാമോദ്ധാരണ ട്രസ്റ്റ് ഹൈസ്കൂൾ സുവർണ ജൂബിലിയും ബഹുനില കെട്ടിടവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

വിലയിടിവിൽ നട്ടംതിരിയുന്ന പൈനാപ്പിൾ കർഷകരുടെ ദുരിതങ്ങൾ നേരിട്ടറിയാൻ വാഴക്കുളം പൈനാപ്പിൾ മാർക്കറ്റ് സന്ദർശിക്കുകയായിരുന്നു മന്ത്രി

നിർമാണം പൂർത്തിയാക്കിയ എട പ്പാൾ നീലിയാട് റോഡും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും എടപ്പാൾ ജങ്ഷ നിൽ തൃശൂർ കോഴിക്കോട് റോഡിന് മുകളിലൂടെയാണ് നിർദിഷ്ട പാലം നിർമിക്കുന്നത്

രാജു ഉറപ്പുനൽകിയതായി പി കെ ശ്രീമതി എം

മന്ത്രിയുടെ ഉറപ്പിനെ തുടർന്ന് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ വനം വകുപ്പ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം അവസാനിപ്പിച്ചു തിരൂർ ജില്ലാ ആശുപത്രിയിൽ ഹീമോഫീലിയ ബാധിതർക്ക് സൌജന്യ ശസ്ത്രക്രിയ ആരംഭിച്ചു പതിനായിരങ്ങൾ ചിലവാകുന്ന ശസ്ത്രക്രിയ തികച്ചും സൌജന്യമായാണ് ജില്ലാ ആശുപത്രിയിൽ നടത്തിക്കൊടുക്കു ന്നതെന്ന് അധികൃതർ അറിയിച്ചു ജില്ലാ ആശുപത്രിയോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന വരം കൂട്ടായ്മയാണ് ശസ്ത്രക്രിയക്കാവശ്യമായ സംവി ധാനം ആശുപത്രിക്ക് നൽകിയത്

ഓർത്തഡോക്സ് ഭദ്രസനാധിപൻ യുഹാനോൻ മാർ മിലി ത്തിയോസും പരിക്കേറ്റവരിൽ ഉൾപെടുന്നു

ജില്ലാ അതിർത്തിയായ ഐക്കരപ്പടിയിൽ രാവിലെ യാത്രയെ സ്വീകരിക്കും

ഇടുക്കി ജില്ലയിലെ മുന്നാമത് പട്ടയമേള അടുത്ത ചൊവ്വാഴ്ച കൂട്ടി ക്കാനം മരിയൻ കോള്ജേിൽ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും ആറായിരത്തോളം പട്ടയങ്ങൾ മേളയിൽ വിതരണം ചെയ്യും